തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു നാമനിർദ്ദേശ് പത്രികകൾ സമർപ്പിച്ചുതുടങ്ങി

നടിയെ ആക്രമിച്ചു ക്ഷേസിൽ സി ബി

ആവശ്യപ്പെട്ട് നടൻ ദ്രില്ലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകി ഐ

ബാംഗ്ളൂരും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും

സ്ഥാവര ജംഗമവസ്തുക്കൾ അടക്കമുള്ള സ്വത്ത് വായ്പാ വിവരങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കുടിശ്ശികയുടെ വിവരങ്ങൾ തുടങ്ങിയവ ഇതിൽ രേഖപ്പെടുത്തണം ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ എഫ്

സൂക്ഷ്മ പരിശോധന അഞ്ചിനു നടക്കും

ബാക്കിയുള്ള ആറു പരാതികളിൽ തുടർനടപടി സ്വീകരിച്ചു വരുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു

നാമനിർദ്ദേശപത്രികാ സമർപ്പണം ആരംഭിച്ചതോടെ പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് ജില്ലയിൽ നിലവിലുള്ളതിനു പുറമെ ദിവസം മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു ആന്റി ഡിഫേയ്സ്മെന്റെ സ്കാഡ് കൂടി ഉടൻ ആരംഭിക്കുമെന്നും കലക്ടർ അറിയിച്ചു

ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സമ്പർക്ക കേന്ദ്രങ്ങൾ ആരംഭിച്ചു

മറ്റ് ജില്ലകളിലെ വിവരങ്ങൾ ലഭിക്കുവാൻ പ്രസ്തുത ജില്ലയിലെ എസ്

വോട്ടർ ഹെൽപ് ലൈൻ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇത് മുഖേന പൊതുജനങ്ങൾക്ക് വോട്ടർപട്ടികയിൽ തങ്ങളുടെ പേര് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും ഇല്ലെങ്കിൽ പേര് ചേർക്കുന്നതിനും തിരുത്തൽ വരുത്തുന്നതിനും ബൂത്ത് മാറ്റുന്നതിനുമുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും അപേക്ഷയുടെ നിലവിലെ സ്ഥിതി അറിയുവാനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുന്നതിനും സൌകര്യമുണ്ട്

പൊതു സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ബന്ധപ്പെട്ടവർ ഉടൻ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ഗവൺമെന്റ് ചിലവിൽ ഇവ നീക്കം ചെയ്യുമെന്നും നഷ്ടപരിഹാരം സ്ഥാനാർഥിയുടെ ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞ രണ്ടു ദിവസമായി സംസ്ഥാനത്ത് നിരവധി പേർക്കാണ് സൂര്യാഘാതം ഏറ്റത് കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകി കുടിവെള്ള ലഭ്യത ഉറ്റപ്പാക്കാനും പകർച്ചവ്യാധി പ്രതിരോധത്തിനും വന്യമൃഗങ്ങൾ പ്നാട്ടിലേയ്ക്ക് ഇറങ്ങുന്നത് തടയാനും മൂന്ന് സമിതിക്ർ ് രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു

തുറന്നിരിക്കുന്ന ഭക്ഷണ പദാർഥങ്ങൾ ഉപയോഗിക്കരുത് ചിക്കൻപോക്സ് ചെങ്കണ്ണ് തുടങ്ങിയ രോഗങ്ങൾ വേനൽക്കാലത്ത് പടരാമെന്നതിനാൽ ശാസ്ത്രീയ ചികിത്സ മാത്രം സ്വീകരിക്കുക ഐഎംഎയുടെ ഗവേഷണ വിഭാഗം നൽകുന്ന തുടർ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കണമെന്നും റെഡ് അലർട്ട് കുറിപ്പിലുണ്ട്

ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നടൻ ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകി ഇതേ ആവശ്യം ഉന്നയിച്ച് നേരത്തെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഇപ്പോൾ ഡിവിഷൻ ബഞ്ചിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അപ്പീൽ തീർപ്പാകുന്നതുവരെ വിചാരണ സ്റ്റേ ചെയ്യണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു അടുത്തമാസം അഞ്ചിനാണ് വിചാരണ ആരംഭിക്കുന്നത്

ഒരു കൂട്ടം ആളുകൾക്ക് മുകളിലോ പൊതു സ്ഥലങ്ങളിലോ ജനം നിറഞ്ഞ സ്റ്റേഡിയങ്ങളിലോ അനുവാദം ഇല്ലാതെ ഡ്രോണുകൾ പറത്താൻ പാടില്ലെന്നും പോലീസ് ഇൻഫർമേഷൻ സെന്റർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഉണ്ട്

സൂര്യാഘാതം മൂലമുള്ള പ്രശ്നങ്ങളും കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പരാതികളും പരിഹരിക്കുന്നതിന് കലക്ട്രേറ്റിലാണ് കൺട്രോൾ റൂം തുറന്നുത്ത്

പകൽച്ചൂട് സാധാരണ ജനജീവിതത്തെയും ഏറെ ബാധിച്ചിട്ടുണ്ട്

മലപ്പുറം സൂര്യാതപഠ മലപ്പുറത്ത് സൂര്യാതപം ഏൽക്കുന്നവരുടെ എണ്ണം വർധിച്ചുവരുന്ന സാഹചര്യത്തിൽ റവന്യൂ ആരോഗ്യ വകുപ്പുകൾ നൽകുന്ന നിർദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കലക്ടർ അറിയിച്ചു ഉഷ്ണ തരംഗ പ്രതിരോധ പ്രവർത്തനങ്ങളും വരൾച്ച അവലോകനവും നടത്താനായി ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗം ഭാരവാഹികൾ മുമ്പ് മത്സരിച്ചപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടു ഈ കാരണങ്ങൾ കൊണ്ടാണ് മത്സരിക്കരുതെന്ന് പറയുന്നത്

എസ് ഇ

ഐപിഎൽ ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ന് മുംബൈ ഇന്ത്യൻസുമയി ഏറ്റുമുട്ടും ബംഗളൂരിൽ രാത്രി എട്ടു മണിക്കാണ് മത്സരം

ലൈസൻസും ഹെൽമെറ്റും ഇല്ലാതെ വാഹനമോടിച്ചതിനും സൈലൻസറിൽ രൂപമാറ്റം വരുത്തിയതിനും ഉൾപ്പെടെയാണ് കേസ്

ദേശീയ സരസ് മേള ദേശീയ സരസ് മേള ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കുന്നംകുളത്ത ആരംഭിക്കും അടുത്ത മാസം ഏഴുവരെ ചെറുവത്തൂർ മൈതാനത്താണ് ഗ്രാമീണ കരകൌശല ഉൽപ്പന്നങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഗാർഹിക ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനം